ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലിത്തയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി അനുശോചിച്ചു

കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രത്യേക പദ്ധതി പ്രകാരം വാക്സിൻ നിർമാതാക്കൾ ആശുപത്രികൾ എന്നിവ ഉൾപ്പെടെയുള്ളവയെ സഹായിക്കാൻ ബാങ്കുകൾക്ക് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു ഇതോടൊപ്പം ഇടത്തരം സൂക്ഷ്മ സംരംഭങ്ങൾക്കും വ്യക്തികൾക്കും ഒറ്റത്തവണ വായ്പ്പാ പുനഃക്രമീകരണവും അനുവദിച്ചിട്ടുണ്ട്

ഇന്നലെ നടന്ന ഇന്തൃ യു കെ വെർച്യുൽ ഉച്ചകോടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസണുമായി നടന്ന കൂടിക്കാഴ്ചയിലാണ് തീരുമാനം ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം വ്യാപാരം സമ്പദ്വ്യവസ്ഥ പ്രതിരോധം സുരക്ഷ കാലാവസ്ഥാ വൃതിയാനം ആരോഗൃ സഹകരണം എന്നീ മേഖലകളിലെ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ളതാണ് കർമപദ്ധതി കോവിഡ് സാഹചരൃത്തെക്കുറിച്ചും മഹാമാരിക്കെതിരായ പോരാട്ടത്തിൽ നിലവിലുള്ള സഹകരണത്തെ ക്കുറിച്ചും ഇരുനേതാക്കളും ചർച്ച ചെയ്തു

രാജ്യത്ത് ഇതുവരെ രണ്ടു കോടിയിലധികം പേർക്കാണ് കോവിഡ് ബാ്ധിച്ചത്

മഹാരാഷ്ട്ര കർണാടക കേരളം തമിഴ്നാട് ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് കോവിഡ് ബാധയിൽ മുന്നിട്ടുനിൽക്കുന്നത്

മൂന്ന് കോടിയിലധികം പേർക്കാണ് രണ്ടാം ഡോസ് വാക്സിൻ നൽകിയത്

ഇന്ന് പുലർച്ചെയോടെ മുംബൈയിലാണ് റെഡസിവർ എത്തിച്ചത്

പരിശോധനാ സാമ്പിളുകൾ ഉയരുകയും ജീവനക്കാർ രോഗബാധിതരാകുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പുതിയ കേന്ദ്ര നിർദ്ദേശം പുറത്തുവന്നത്

തിരുവല്ലയിലെ കുമ്പനാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം

ഗൌരവത്തോടെ പരിഗണിക്കേണ്ട പ്രശ് നമാണിതെന്നും എല്ലാവരും അവരവരുടെ കുടുംബത്തിനു ചുറ്റും ഒരു സുരക്ഷാവലയം ഒരുക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

അവശ്യ സർവീസുകൾ ഒഴികെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്ട്

വോട്ടെടുപ്പിന് ശേഷമാരംഭിച്ചു അക്രമത്തിൽ ഒട്ടേറെ ബിജെപി പ്രവർത്തകരും അനുഭാവികളും കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആക്രമണത്തിനിരയായ പ്രവർത്തകരെ കാണാൻ ബിജെപി പ്രസിഡന്റ് ജെ പി നദ്ദ പശ്ചിമ ബംഗാളിൽ എത്തിയിട്ടുണ്ട്

കെ കക്ഷിനേതാവ് എം കെ സ്റ്റാലിൻ തമിഴ്നാട് ഗവർണർ ബൻവാരിലാൽ പുരോഹിതിനെ കണ്ട് സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ച് കത്ത് നൽകി

മാർ ഒപ്പിട്ട കത്ത് സ്റ്റാലിൻ ഗവർണർക്ക് കൈമാറി